പാക്ക് പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങളുടെ പ്രടിവാതിൽക്ക ലെത്തി ഇന്ത്യാവിരുദ്ധ പ്രചാരണം നട്ത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ്സിംഗ് വയനാട് ദേശീയപാതയിലെ രാത്രിയാത്രാ വിലക്കിൽ മുഖ്യ മന്ത്രിയും സർവ്വക്ഷിസംഘവും ഒക്ടോബർ ഒന്നിന് കേന്ദ്ര മന്ത്രി പ്രകാശ്ജാവ്ദേക്കറെ കാണും പാൻകാർഡ് ആധാർകാർഡുമായി ബന്ധിപ്പിക്കാൻ അനുവ ദിച്ച സമയപരിധി മറ്റന്നാൾ അവസാനിക്കും

ദോഹ ലോക അത്ലറ്റിക്സിൽ ഇന്ന് ആറിനങ്ങളിൽ ഫൈനൽ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ഡൽഹിയിലെത്തും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് പുലർച്ചെ അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് യാത്ര തിരിച്ചത് അമേരിക്കയിലെ ഹൌഡി മോദി പരിപാടി ഐക്യ രാഷ്ട്ര സഭ പൊതുസഭയിലെ പ്രസംഗം വ്യാപാര പ്രമുഖരുമായി ഹൂസ്റ്റണിൽ നടത്തിയ കൂടിക്കാഴ്ച ഭീകരതക്കെതിരായ ശക്ത മായ ഇന്ത്യൻ നിലപാട് കാലാവസ്ഥാ വൃതിയാനം സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാട് പാരമ്പര്യേതര ഊർജ്ജോത്പാദനം വർധി പ്പിക്കുമെന്ന പ്രഖ്യാപനം തുടങ്ങിയ കാര്യങ്ങൾ ഒരാഴ്ചത്തെ സന്ദർശനത്തിന്റെ സവിശേഷതകളായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഇന്നലെ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ആഹ്വാനം ചെയ്തു പാക്ക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജമ്മുകശ്മീർ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പടിവാതിൽക്കലെത്തി ഇന്ത്യാ വിരുദ്ധ പ്രചാ രണം നടത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ്സിംഗ് കുറ്റപ്പെടു ത്തി കശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഉന്നയിച്ചതും ഇതേ ലക്ഷ്യത്തോടെയാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ മാതൃ കയിൽ ഇന്ത്യൻ തീരപ്രദേശങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും അത് നടക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു ഇന്ത്യയുടെ സ്കോർപീൻക്ലാസ് അന്തർവാഹിനി ഐ

എസ് ഖണ്ടേരി മുംബൈയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു രാജ്നാഥ്സിങ്

എസ് നീലഗ്ഗിരി യുദ്ധക്കപ്പലും ആഭ്യന്ത രമന്ത്രി നാവിക സേനയിൽ ഉൾപ്പെടുത്തി പാക്ക് പ്രധാമന്ത്രി ഇമ്രാൻഖാൻ യുഎൻ പൊതുസഭയിൽ നട ത്തിയ പ്രസംഗം ഒരു രാഷ്ട്ര തന്ത്രജ്ഞന് ചേർന്നതല്ലെന്നും യുദ്ധ ത്തിന്റെ വക്കില്പെത്തിക്കുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി വിധിഷ മൈത്ര ഇമ്രാൻഖാൻ ഭീകരവാദത്തെ ന്യായീകരിക്കുന്നതായി അവർ ന്യൂയോർക്കിൽ യുഎൻ പൊതു സഭയിൽ പറഞ്ഞു തീവ്രവാദികൾക്ക് പെൻഷൻ നൽകുന്ന രാജ്യമാണ് പാക്കിസ്ഥാ നെന്നും മനുഷ്യാവകാശത്തെ കുറിച്ചും തീവ്രവാദത്തെ കുറിച്ചും ഇന്ത്യയെ പഠിപ്പിക്കാൻ പാക്കിസ്ഥാന് ഒരർഹതയും ഇല്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു വയനാട് ദേശീയപാതയിലെ രാത്രിയാത്രാ വിലക്കിൽ കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യ മന്ത്രി പിണറായി വിജയനും വയനാട്ടിലെ സർവ്വകക്ഷി സംഘവും ഒക്ടോബർ ഒന്നിന് ഡൽഹിയിലേക്ക് പോകും

യാത്രാ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനകൾ ബത്തേരിയിൽ നടത്തുന്ന അനിശ്ചിതകാല നിരഹാര സമരം നാലാം ദിവസത്തിലേക്ക് കടന്നു സംസ്ഥാനത്ത് അഞ്ച് മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെര ഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നാല് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും നാല് സീറ്റുകളിലേയും സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്നലെ സംസ്ഥാന ഘടകം ഹൈക്കമ്മാൻഡിന്റ് കൈമാറി യുഡിഎഫിൽ മുസ്ലിം ലീഗ് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ എൻ

എ ഓരോ മണ്ഡലത്തിലേക്കും മൂന്ന് വീതം സ്ഥാനാർത്ഥികളുടെ ്പട്ടികൃ കൈന്ദ്രത്തിന് കൈമാറി യിട്ടുണ്ട് പട്ടികയിൽ അന്തിമ ത്രീരുമാനമെടുത്ത ശേഷം ബി ജെ പി പാർലമെന്ററി ബോർഡ് ഡൽഹിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപി ക്കും അരൂർ സീറ്റ് ബിജെപി ഏറ്റെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് പാലാ ഉപതെരഞ്ഞെടുപ്പിലെ യുഡിഎഫിന്റെ പരാജയത്തെ തുടർന്ന് കേരള കോൺഗ്രസ് എം ൽ വീണ്ടും പരസ്പരം പഴിചാ രൽ ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതും ചിഹ്നം നഷ്ടപ്പെടുത്തിയതും തോൽവിക്ക് കാരണമായെന്ന് പി ജെ ജോസഫ് അഭിപ്രായപ്പെട്ടു

അതേസമയം ജോസഫ് വിഭാഗം വൃക്തിപരമായി വേട്ടയാടി യെന്ന് ജോസ് കെ മാണി പറഞ്ഞു പാർട്ടിയിലെ അനൈക്യം മൂലം നിഷ്പക്ഷവോട്ടുകൾ കിട്ടാതെ പോയെന്നും യുഡിഎഫിന്റെ കെട്ടു റപ്പ് മുൻനിർത്തി മാത്രമാണ് മൌനം പാലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടില ചിഹ്നം ഉപയോഗിക്കാത്തതും പരാജയകാരണമാ യെന്ന് ജോസ് കെ മാണി വിലയിരുത്തി കോന്നിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരിൽ അടൂർപ്രകാശ് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചു പൊതു സമ്മ തൻ എന്ന നിലയിലാണ് റോബിൻപീറ്ററുടെ പേര് നിർദേശിച്ചതെന്നും വിജയസാധ്യത മാത്രമാണ് പരിഗണിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളിലൂടെയാണ് പി മോഹൻ രാജിന്റെ പേര് അറിഞ്ഞ തെന്നും തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാന്റാണെന്നും അടൂർപ്രാ കാശ് അറിയിച്ചു ടൂറിസം പഠനത്തിലെ ആഗോള പ്രവണതകൾ സംബന്ധിച്ച് തിരു വനന്തപുരം കിറ്റ്സിൽ സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ രാജ്യാ ന്തര സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാവിലെ ഉദ്ഘാ ടനം ചെയ്തു ടൂറിസം മേഖലകളിലെ വിദഗ്ദരും സ്ഥാപന മേധാ വികളും സമ്മേളനത്തിൽ പങ്കെടുത്തു നാളെ പ്രവെകീട്ട് മന്ത്രി കട കംപള്ളി സുരേന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ജൂലായിൽ അവത്രിപ്പിച്ച് ബജറ്റിൽ വരുത്തിയ നിയമഭേദഗതിപ്രകാരം ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻനമ്പർ ഒക്ടോബർ ഒന്നുമുതൽ പ്രവർത്തനരഹിതമാകും അതേസമയം ആദായനികുതി റിട്ടേൺ നൽകാൻ ആധാർനമ്പർ നൽകിയാൽ മൃതിയെന്ന് കേന്ദ്ര ഗവണ്മെന്റ് അറിയിച്ചിട്ടുണ്ട്

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി യായ മൻ കി ബാത്തിൽ നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശ യങ്ങൾ പങ്കുവെയ്ക്കും

കേരള നിലയങ്ങളിൽ മലയാള പരിഭാഷ രാത്രി എട്ടിന് കേൾക്കാം

പി ജാബിർ സെമി ഫൈനലിലെത്തി

അതേസമയം ലോങ്ജംപ് യോഗൃതാ റൌണ്ടിൽ മലയാളി താരം എം ശ്രീശങ്കർ പുറത്തായി

കൊറിയൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ ഇന്ത്യയുടെ പി കശ്യപ് ഇന്ന് മത്സരിക്കും ലോക് ഒന്നാം നമ്പർ താരം ജപ്പാന്റെ കെന്റോ മൊമോട്ടോയാണ് സെമിയിൽ കശ്യപിന്റെ എതിരാളി

ഇന്നലെ സെമിയിൽ ഇന്ത്യ ഏകപക്ഷീയമായ നാലു ഗോളുകൾക്ക് മാലദ്വീപിനെ തോൽപിച്ചു

മുഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനു മതിയോടെയാണ് ചടങ്ങിൽ മന്ത്രിമാരായ സി രവീന്ദ്ര നാഥും ഇ ചന്ദ്രശേഖരനും പങ്കെടുക്കുന്നത്

നിരീശ്വരൻ എന്ന നോവലിനാണ് അവാർഡ് ഒരു ലക്ഷംരൂപയാണ് അവാർഡ് തുക

ശബരിമല യുവതി പ്രവേശനം കൊണ്ട് മാത്രം നവോത്ഥാനം പൂർണമാവില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് എ്

നവോത്ഥാനം എന്നത് പിന്നാക്ക വിഭാഗത്തിന്റെ ഉന്നതിയുമായി ഉയർന്നു വരേണ്ട പ്രിശ്നമാണെന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു ബിന്ദൂവും കനക ദുർഗയും ശബരിമലയിൽ കയറിയതിലൂടെ വിധി നടപ്പിലായെന്നോ യുവതികൾ പ്രവേശിച്ചെന്നോ കണക്കാക്കേണ്ടെന്നും വെല്ലുവിളിച്ച് കയറുന്നതും അല്ലാത്തിരുത്ത്മിൽ വ്യത്യാസമുണ്ടെന്നും പത്മകുമാർ വ്യക്തമാക്കി പരശുറാം എക്സ്പ്രസിന്റെ കമ്പാർട്മെന്റ് മെയിന്റനൻസ് കേന്ദ്രം മംഗലാപുര്ത്ത് നിലനിർത്തി കൂടുതൽ കോച്ചുകൾ ലഭ്യമാ ക്കണമെന്ന് എം കെ രാഘവൻ എം പി ആവശ്യപ്പെട്ടു കേന്ദ്രം നാഗർകോവിലിലേക്ക് മാറ്റിയത് മൂലം അറ്റകുറ്റ പണികൾക്ക് മതി യായ സമയം ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷനും കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയും സംയുക്തമായി ഹൃദയത്തിന് വേണ്ടി ഒരു ഓട്ടം പരിപാടി നാളെ രാവിലെ കോർപ്പറേഷൻ ഓഫിസിന് സമീപം സംഘടിപ്പിക്കും മാനാഞ്ചിറ മൈതാനത്ത് ഹൃദയത്തിന് വേണ്ടി ഒരു നടത്തം പരിപാടിയും ടൌൺഹാളിൽ ഹൃദ്രോഗ വിദഗ്ധരുമായി മുഖാമുഖവും നടക്കും

ഷാർജയിൽ മൂന്ന് ദിവസം മുമ്പ് കാണാതായി മലയാളി യുവാ വിനെ വാഹനമിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി വാടാനപ്പളളി അറ ക്കവീട്ടിൽ ഷിറാസിന്റെ മൃതദേഹമാണ് ഷാർജ് ആശുപത്രി മോർച്ച റിയിൽ കണ്ടെത്തിയത് കൊച്ചിയിൽ നിന്ന് ഇസ്രായലിലേക്ക് ഇന്നു മുതൽ നേരിട്ട് വിമാ നസർവീസ് ആരംഭിക്കും അസ്രായേൽ എയർലൈനായ അർക്കി യയാണ് ശനി ചൊവ്വ ദിവസങ്ങളിൽ തെൽഅവീവിലേക്ക് സർവീസ് നടത്തുന്നത് ആറു മണിക്കൂറാണ് പറക്കൽ സമയം കോഴിക്കോട് അഴകൊടി ദേവി മഹാക്ഷേത്രത്തിൽ പൂർത്തീകരിച്ചു നിർമാണ പ്രവൃത്തികൾ രാവിലെ മലബാർ ദേവസ്വം ബോർഡ് കമ്മിഷണർ കെ മുരളി ഉദ്ഘാടനം ചെയ്തു